പരിസര ശുചീകരണത്തിന്റെ സന്ദേശവുമായി ഗാന്ധിജയന്തി ദിനത്തിൽ രാജ്യമെങ്ങും ഫിറ്റ് ഇന്ത്യാ പ്ളോഗിംങ് ജനമുന്നേറ്റം സംഘടിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നര്മേന്ദ്രമോദി

അന്താരാഷ്ട്ര വേദിക്ളിൽ കാശ്മീർ പ്രശ്നം ഉന്നയിക്കുന്നതിൽ പാകിസ്ഥാന് ഇന്ത്യയുടെ വിമർശനം പട്ടാള ഭരണ പാരമ്പര്യം പാകിസ്ഥാന്റേതെന്ന് ഇന്ത്യ

ജെ

പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കീ ബാത്തിൽ ജനങ്ങളോട് സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഗാന്ധി ജയന്തി ദിനത്തിൽ രാജ്യത്ത് ഉടനീളം ഫിറ്റ് ഇന്ത്യ പ്ലോഗിംഗ് എന്ന കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുമെന്നും പ്രധാനമന്ത്രി

പ്രഭാത വ്യായാമത്തിന് നിരത്തിലിറങ്ങുന്നവർ ഓട്ടത്തിനു ശേഷമുള്ള വിശ്രമവേളയിൽ പ്ലാസ്റ്റിക്കും ചപ്പുചവറുകളും ഉൾപ്പെടെയുള്ള മാലിനൃങ്ങൾ പെറുക്കി അവ ചവറു കുട്ടയിൽ ഇടുകയോ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ കൈമാറുകയോ ചെയ്യുന്ന പ്ലോഗിംഗ് രീതി പിന്തുടരാനും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

ചെറുപ്പകാലത്ത് തന്നെ പുകയില ഉപേക്ഷിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് ആരോഗൃമുള്ള ഇന്തൃക്ക് സഹായകരമാകുമെന്ന് അദ്ദേഹം മൻ കീ ബാത്തിൽ പറഞ്ഞു പെൺകുട്ടികളുടെ നേട്ടങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ ലോകത്തെ അറിയിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

അതിനാലാണ് ഇ സിഗരറ്റ് നിരോധിച്ചത്രെന്നും അദ്ദേഹം പറഞ്ഞു

പെൺകുട്ടികളുടെ നേട്ടങ്ങൾ ലോകത്തെ അറിയിക്കണമെന്ന് രാജ്യത്തെ മാതാപിതാക്കളോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു

പെൺ മക്കളുമൊത്തുള്ള ഫോട്ടോ സമൂഹമാധ്യമങ്ങൾ വഴി പ്രസിദ്ധപ്പെടു ത്താനും പ്രധാനമന്ത്രി നിർദേശിച്ചു

മലയാളിയായ സിസ്റ്റർ മറിയം ത്രേസ്യയുടെ സേവനങ്ങളെ ശ്രീ

നവരാത്രി ആഘോഷങ്ങളോടെ രാജ്യത്ത് ഉത്സവകാലം തുടങ്ങുക യാണ് നമ്മുടെ ഉത്സവങ്ങൾ സാമൂഹ്യ ഐക്യത്തിന്റെ സംസ്കാരം കൊണ്ടുവരുന്നതായും പുതിയ ദൃഢന്ദിശ്ചിയങ്ങൾക്ക് ഉത്സവങ്ങൾ തുടക്കമാകട്ടെ എന്നും പ്രധാനമിന്ത്യ് മൻ കീ ബാത്തിൽ ആശംസിച്ചു

ലോക്സഭാ സ്പീക്കർ ഓം ബിർലയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് പട്ടാള ഭരണം ഇസ്താമാബാദിന്റെ പാരമ്പരൃമാണെന്നും അത്തരം ഭരണം ഇന്ത്യയ്ക്ക് പരിചിതമല്ലെന്നും ഇന്ത്യ പറഞ്ഞു

മാരായ രൂപ ഗാംഗുലി ആദിർ രഞ്ജൻ ചൌധരി എൽ

എന്നാൽ ഇന്ത്യയുടെ കടുത്ത വിമർശനത്തെ തുടർന്ന് ഈ പ്രസ്താവനകൾ മാലിതളളി

വെങ്കയ്യനായിഡു ലോക നേതാക്കളോട് ആവശ്യപ്പെട്ടു മാനവരാശിയുടെ ശ്രത്യുവാണ് ഭീകരവാദമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു രാജസ്ഥാനിൽ മൌണ്ട് അബുവിൽ ബ്രഹ്മ കുമാരിസ് സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അ്ദ്ദേഹം ആത്മീയതയിലൂടെ അഭിവൃദ്ധി സമാധാനം ഐകൃം എന്ന് വിഷയത്തിലാണ് ആഗോള സമ്മേളനം നടക്കുന്നത്

എല്ലാത്തരം ഉള്ളി ഇനങ്ങൾക്കും കയറ്റുമതി ചെയ്യുന്നതിൽ നിരോധനമുണ്ട് കേന്ദ്ര വാണിജ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറ ക്കിയത് രാജ്യത്ത് ഉള്ളി വില വർദ്ധിച്ച പശ്ചാത്തലത്തിലാണിത് കഴിഞ്ഞ ആഴ്ച കർഷകരുമായും കച്ചവടക്കാരുമായും ചർച്ച നടത്താൻ ജോയിന്റ് സെക്രട്ടറി തലത്തിലെ രണ്ട് ഉദ്യോഗസ്ഥരട ങ്ങുന്ന സംഘത്തെ കേന്ദ്രം നിയോഗിച്ചിരുന്നു ഉള്ളി ലഭ്യതയെ ക്കുറിച്ച് അറിയാനും കൂടുതൽ ഉള്ളി എത്തിക്കാനുമായിരുന്നു ചർച്ചു സംസ്ഥാനങ്ങളുടെ ആവശ്യാനുസരണം കേന്ദ്ര ഗവൺമെന്റ് ഉള്ളി എത്തിക്കുന്നുണ്ട് ആവശ്യമനുസരിച്ച് ഇവ വേഗത്തിൽ ലഭ്യമാക്കുമെന്ന് കേന്ദ്ര മന്ത്രി രാം വിലാസ് പസ്വാൻ അറിയിച്ചു

ജെ

യും കോൺഗ്രസും വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചു

ജെ

സുരേന്ദ്രൻ കോന്നിയിലും എസ്

മൂന്ന് സംസ്ഥാനങ്ങ്ളിലെ നാല് സ്ഥാനാർത്ഥികളെയും സമസ്തിപൂർ പാർലമെന്റ് പ്രമൺഡലത്തിലെ സ്ഥാനാർത്ഥിയേയും കോൺഗ്രസ് പ്രഖ്യാപിച്ചു

ജെ

നാമ നിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ യാണ്

ജെ പിക്ക് എട്ടും ബി

പിക്കും എസ് പിക്കും ഓരോ സീറ്റുമാണുള്ളത്

എല്ലാ ലാന്റ് ഫോണുകളും പ്രവർത്തിക്കുന്നു ജനങ്ങൾ ചികിത്സ തേടി ആശുപത്രികളിൽ എത്തുന്നതായും സ്വന്തം ജോലികളിൽ ജനങ്ങൾ ഏർപ്പെടുന്നതായും ശ്രീ

ന്യൂഡൽഹി യിൽ ദേശീയസുരക്ഷ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ശ്രീനഗറിലും താഴ്വരയിലും സ്ഥിതിഗതികൾ സാധാരണ നിലയിലാണെന്നും ശ്രീ

നഗരപ്രദേശങ്ങളിലും അന്തർ ജില്ലാ റോഡുകളിലും കാർ ആംബുലൻസ് ആശുപത്രി വാഹനങ്ങൾ മുചക്ര വാഹനങ്ങൾ ് എന്നിവഓടുന്നുണ്ട് കുപ്പ്വാര ഹന്ദ്വാര ജില്ലകളിൽ ് ഖ്മാബൈൽ ഫോണുകൾ പ്രവർത്തിക്കുന്നതായും ആഭ്യന്തർമന്ത്രി അറിയിച്ചു

ജമ്മുകാശ്മീരിലെ ഊർജ്ജ വികസന വകുപ്പ് സംസ്ഥാനത്തെ ഗ്രാമസേവക് റവന്യൂ പ്രാദേശിക നേതൃത്വം തുടങ്ങിയവയുമായി ചേർന്നാണ് ഈ നേട്ടത്തിനായി പ്രയത്നിക്കുന്നത് ഗ്രാം ജ്യോതി ദൂത് ഊർജ വിസ്താർ തുടങ്ങിയ മൊബൈൽ ആപ്പുകളും സഹായത്തിനായി ലഭ്യമാക്കിയിട്ടുണ്ട്

കേന്ദ്ര പ്രതൃക്ഷ് നികുതി ബോർഡ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിരുക്കു

ജില്ലാകളക്ടറു മായും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നടന്ന ചർച്ചക്കൊടുവിലാണ് ഫ്ളാറ്റുടമകൾ നിലപാട് വ്യക്തമാക്കിയത്

വിക്രം പ്രതാപ് സിംഗും രവി ബഹദൂർ റാണയുമാണ് ഇന്ത്യയ്ക്കുവേണ്ടി ഗോൾ നേടിയത്

പരമ്പ്രയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കാ യിരുന്നു വിജയം രണ്ടാമുത്തെ മത്സരം മഴമൂലം റദ്ദാക്കിയിരുന്നു